മധ്യസ്ഥനെ നിയമിക്കുന്നത് സംബന്ധിച്ച കേസ് സുപ്രീംകോടതി വിധി പറയാൻ മാറ്റി

സാഹചര്യത്തിൽ ജപ്തി നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന് മുഖ്യമന്ത്രി ബാങ്കുകളോട് ആവശ്യപ്പെട്ടു

നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്

ആർക്കും അന്ുവാദമില്ലെന്ന് ഹൈക്കോടതി

തർക്കം പരിഹരിക്കുന്നതിന് നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സി

എം

സ്ഥാനാർത്ഥികളെ ശനിയാഴ്ച പ്രഖ്യാപിക്കും അയോധൃ സുപ്രീംകോടതി രാമ ജന്മഭൂമി ബാബ്റി മസ്ജിദ് ഭൂമി തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥനെ നിയമിക്കുന്നത് സംബന്ധിച്ച കേസ് സുപ്രീംകോടതി വിധി പറയാൻ മാറ്റിവെച്ചു വിഷയം എത്രയേറെ ഗൌരവമേറിയതാണ് എന്നതിനെ കുറിച്ച് ബോധ്യമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടന ബെഞ്ച് നിരീക്ഷിച്ചു ഭൂമി സംബന്ധിച്ച കേസ് എന്നത് മാത്രമല്ല വിശ്വാസത്തിന്റെയും ജനവികാരത്തിന്റെയും കൂടി കാര്യമാണ് ദശാബ്ദങ്ങൾ നീണ്ട തർക്കത്തിന് സൌഹൃദപരമായ ഒത്തുതീർപ്പിനുള്ള സാധ്യതയുണ്ടൊയെന്ന് പരിശോധിക്കാൻ കേസിലെ കക്ഷികളോട് പരമോന്നത കോടതി ആവശ്യപ്പെട്ടു

റഫാൽ സുപ്രീംകോടതി റഫാൽ ഇടപാടുമായി ബന്ധഉപ്പ്പ്ട്ട് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച രേഖകൾ പ്രതിരോധ മന്ത്രാലയ്ത്തിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് ഗൃപ്പൺമെന്റിന് വേണ്ടി അറ്റോർണി ജനറൽ കെ

റഫാൽ ഇടപാടിലെ പ്പുനപരിശോധന ഹർജി തള്ളണമെന്നും ഗവൺമെന്റ് ആവശ്യപ്പെട്ടു മുൻ ഉത്തരവ് പുനപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് വാദം കേൾക്കവെയായിരുന്നു അറ്റോർണി ജനറലിന്റെ വെളിപ്പെടുത്തൽ

എൽ

പുതിയ വായ്പക്ക് ഒരു വർഷത്തെ പലിശ ഗവൺമെന്റ് നൽകുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കാർഷിക കടാശ്വാസ കമ്മീഷൻറെ പരിധിയിൽ വാണിജ്യ ബാങ്കുകളെ ഉൾപ്പെടുത്താനുള്ള ഗവൺമെന്റ് തീരുമാനത്തോട് അനുകൂലമായാണ് ബാങ്ക് പ്രതിനിധികൾ പ്രതികരിച്ചത് കൃഷിക്കാരുടെ പ്രയാസം മനസ്സിലാക്കി അവർക്ക് ആശ്ചാസും പ്ലൂപകരുന്ന സമീപനം ബാങ്കുകളിൽ നിന്ന് ഉണ്ടാകണമെന്ന് മൂഖ്യമന്ത്രി പറഞ്ഞു കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും പ്രളയൃദ്ധൂർ കൃഷിക്കാരുടെ വരുമാനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ക്ക് ഇ സാഹചര്യം കണക്കിലെടുത്ത് ഗവൺമെന്റുമായി ബാങ്കുകൾ പൂർണമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു മൊറട്ടോറിയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജഷ്തിയോ മറ്റു നടപടികളോ പാടില്ല

പുതിയ കൃഷി സാധ്യമാക്കാനാണ് ഒരു വർഷത്തെ പലിശ ഗവൺമെന്റ് നൽകുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി രമേശ് ചെന്നിത്തല കർഷക ആത്മഹത്യകളുടെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വായ്പ കുടിശ്ശികകൾ എഴുതി തള്ളുക പ്രളയ പ്രകൃതി ദുരന്തത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങളുന്നയിച്ച് ഇടുക്കിയിലെ കട്ടപ്പനയിൽ അദ്ദേഹം ഉപവാസം നടത്തി മോറട്ടോറിയം നിലനിൽക്കുമ്പോഴാണ് എട്ട് കർഷകർ ആത്മഹത്യ ചെയ്തത്

പൊതുതാൽപര്യ ഹർജിയിൽ കോടതി പുറപ്പെടുവിക്കുന്ന ഏതൊരു ഉത്തരവും അനുസരിക്കാൻ എല്ലാവരും ബാദ്ധ്യസ്ഥരെന്നും കോടതി നിർദ്ദേശിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പ്രിയിക്ഷേധിച്ച് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് ആപ്പ്പാനം ചെയ്ത മിന്നൽ ഹർത്താലിനെതിരെയുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ക്ടോടതീയുടെ പരാമർശം

ഹർത്താലിന് മുൻകൂർ നോട്ടീസ് നൽകുന്നത് അക്രമത്തിനുള്ള ലൈസൻസ് അല്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു മുഖ്യമന്തി സംസ്ഥാനത്തെ വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പള്ളി സ്വത്ത് സംബന്ധിച്ച തർക്കം പരിഹരിക്കുന്നതിന് നിയമം കൊണ്ടുവരാൻ ഗവൺമെന്റിന് ഒരു ഉദ്ദേശവും ഇല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്തൃൻ സഭാ നേതാക്കളുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം നടത്തിയ ഇക്കാര്യാ വ്യക്തമാക്കിയത്

ഡി

എന്നാൽ അന്നും ഗവൺമെന്റ് അത് തള്ളിക്കളയുകയാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി

അടിയന്തര സാഹചര്യം നേരിടാൻ കെ എസ് ഇ ബി

വരൾച്ച മുന്നിൽ കണ്ട് അണക്കെട്ടുകളിലെ വെള്ളം പരമാവധി നിലനിർത്താനാണ് തീരുമാനം

സംസ്ഥാനത്തിനാവശ്യമായ വൈദ്യുതിയുടെ മൂന്നിലൊന്ന് മാത്രമാണ് ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നത്

കാലാവസ്ഥാവ്യതിയാന്റിത്തിന്റെ ഫലമായി അന്തരീക്ഷ താപനില പതിവില്ലാത്ത വിധം വർദ്ധിക്കുന്നതിനാൽ കൊടുംചൂടിൽ കുട്ടി കൾക്ക് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിൽ യൂണിഫോം നിർബന്ധമാ ക്കരുത് ഇറുകിയ യൂണിഫോം സോക്സ് ഷൂസ് ടൈ തലമുടി മുറുക്കി കെട്ടുക തുടങ്ങിയവ യൂണിഫോമിന്റെ ഭാഗമാണെങ്കിലും സ്കൂൾ അധികാരികൾ നിർബന്ധിക്കാൻ പാടില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി പരീക്ഷാ ഹാളിലും ക്സാസ് മുറികളിലും ഫാനുകൾ കുടിവെള്ളം തുടങ്ങിയവ സജ്ജീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്

എസ് സംസ്ഥാനത്ത് എം

ബി എസ്

ഡി

കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആയതോടെ ഈ അധ്യ യന വർഷം തന്നെ ഗവൺമെന്റ് സീറ്റുകൾ വർധിപ്പിക്കാൻ സാധിക്കു മെന്ന് ആരോഗ്യ മന്ത്രി പറഞ്ഞു

ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സി

ഐ എം സ്ഥാനാർത്ഥികളെ ശനിയാഴ്ച പ്രഖ്യാപിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു തിരുവനന്തപുരത്ത് രണ്ട് ദിവസമായി നടന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം എ

ജി സെന്ററിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സ്ഥാനാർത്ഥികളെ ഉഭയ്ക്കൂഷി ചർച്ചയിലൂടെ എൽ ഡി എഫ് നേതൃത്വം തീരുമാനിക്കുമെന്നും ശ്രീ

്ട്ര്യിർുവനന്തപുരം വിമാനത്താവളത്തെ സ്വകാര്യവത്കരിക്കുന്നതീ്നെതിരെ നിയമ പോരാട്ടം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു കോൺഗ്രസ് അതേസമയം കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണ്ണയം അന്തിമ ഘട്ടത്തിലേക്ക് കടന്നതായി സൂചന

സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ മുസ്ലീം ലീഗ് ഉന്നതാധികാര സമിതി യോഗം പാണക്കാട്ട് ചേർന്നു

നാളെ തളിപ്പറമ്പ് ഇരിക്കൂർ പേരാവൂർ മട്ടന്നൂർ ധർമ്മടം അഴിക്കോട് എന്നിവിടങ്ങളിൽ പര്യടനത്തിനുശേഷം കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ യാത്ര സമാപിക്കും

ഇതിന്റെ ഭാഗമായി സാധൃത പഠനങ്ങൾ നടത്താൻ രാജ്യാന്തര കൺസൾട്ടൻസിയെ നിയമിക്കും

ഇത് തിരിച്ചറിഞ്ഞാണ് താലൂക്കടിസ്ഥാനത്തിൽ സപ്ലൈക്കോ സ്വന്തം ഉടമസ്ഥതയിൽ പ്രതിന്നെ നിലവാരമുള്ള ഗോഡൌണുകൾ നിർമ്മിക്കുന്നതെന്ന് ട്രി മിന്തി പി

ദേശീയ ഭക്ഷ്യ്ടഭൂദ്ദത്ാ നിയമപ്രകാരം വിതരണം ചെയ്യാനുള്ള ഭക്ഷ്യവസ്തുക്ക്ൾ സംഭരിക്കുന്നതിന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ് നിർമ്മിക്കുന്ന ഗോഡൌണിന്റെയും സപ്ലൈക്കോ ഹൈപ്പർമാർക്കറ്റിന്റെയും ശിലാസ്ഥാപനം നിർവ്വഹിക്കുകയായിരു്നു് ് അദ്ദേഹം